ഇന്ത്യൻ വംശജ കമലാ ഹാരിസ് വൈസ് പ്രസിഡന്റ് കമല ഈ പദവിയിലെത്തുന്ന ആദൃ വനിത

തെക്കൻ ഗുജറാത്തിനെ സൌരാഷ്ട്രയുമായി ന് ബന്ധിപ്പിക്കുന്ന റോ പാക്സ് ഫെറി സർവ്വീസ് ഇന്ന് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും

എല്ലാ നാലു ചക്ര വാഹനങ്ങൾക്കും ജനുവരി ഒന്ന് മുതൽ ഫാസ്ടാഗ് നിർബന്ധമാക്കി

ഈ പദവിയിൽ എത്തുന്ന ആദ്യത്തെ വനിതയും ആദ്യ ഏഷ്യൻ വംശജയുമാണ് കമല ഹാരിസ് മൂന്ന് ദിവസത്തിലേറെ നീണ്ട അനിശ്ചതത്തിനൊടുവിലാണ് തെരഞ്ഞെടുപ്പ് ഫലം അന്തിമമായി പുറത്തുവരുന്നത്

നിർണ്ണായക സംസ്ഥാനങ്ങളായ പെൻസിൽവാനിയ നെവാഡ എന്നിവിടങ്ങളിൽ മുന്നേറ്റം നടത്തിയിരുന്ന് ബൈഡൻ വിജയം ഉറപ്പിച്ചത്

അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന ജനകീയ വോട്ട് നേടിയാണ് ബൈഡന്റെ വിജയം ഇതുവരെ നേടിയ ജനകീയ വോട്ടുകൾ ഏഴ് കോടി കടന്നു അമേരിക്കൻ ജനതയുടെ പിന്തുണയിൽ നന്ദി അറിയിക്കുന്നുവെന്നും തന്നിൽ അർപ്പിച്ച വിശ്വാസം കാക്കുമെന്നും ജോബൈഡൻ പ്രതികരിച്ചു കോവിഡിനെതിരായ പോരാട്ടത്തിനും സമ്പദ് ഘടനയുടെ വളർച്ചയ്ക്കും കാലാവസ്ഥാ വൃതിയാനത്തെ ചെറുക്കാനും പോരാടാൻ ഊർജ്ജം പകരുന്ന ജനവിധിയാണ് ഉണ്ടായതെന്നും അദ്ദേഹം പറഞ്ഞു പ്രസിഡന്റാകാനുള്ള ഇലക്ടറൽ വോട്ടുകൾ ബൈഡൻ ഉറപ്പിച്ചതോടെയാണ് വൈസ് പ്രസിഡന്റായി കമലാ ഹാരിസ് സ്ഥാനം ഉറപ്പിച്ചത്

ഇന്ത്യ യുഎസ് ബസ്ക്ടു ശിക്തമാക്കാൻ ഒന്നിച്ച് പ്രവർത്തിക്കുമെന്നും അദ്ദേഹ് ട്വിറ്ററിൽ കുറിച്ചു

അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് ആയി പ്രവർത്തിച്ച കാലയളവിൽ ഇന്ത്യ അമേരിക്ക ബന്ധം ശക്തമാക്കുന്നതിൽ ബൈഡൻ മൂല്യവത്തായ സംഭാവനകൾ നൽകിയിട്ടുണ്ടെന്ന് പ്രധാനമന്ത്രി ഓർമിച്ചു ഇരുരാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം പുതിയ ഉയരങ്ങളിലെത്തിക്കാൻ ഒന്നിച്ച് പ്രവർത്തിക്കാൻ കാത്തിരിക്കുകയാണെന്നും അദ്ദേഹം ട്വിറ്ററിൽ കുറിച്ചു അമേരിക്കൻ വൈസ് പ്രസിഡന്റായ് തെരഞ്ഞെടുക്കപ്പെട്ട കമല ഹാരിസിനേയും പ്രധാനമന്ത്രി അഭിനന്ദിച്ചു കമലഹാരിസിന്റെ മുന്നേറ്റം എല്ലാ ഇന്ത്യൻ അമേരിക്കൻ വംശജർക്കും ആവേശം പകരുന്നതാണ് അവരുടെ പിന്തുണയോടെ ഇന്ത്യ അമേരിക്ക ബന്ധം കൂടുതൽ ദൃഡമാകുമെന്ന ആത്മവിശ്വാസവും പ്രധാനമന്ത്രി നരേന്ദ്രമോഡി പങ്കുവച്ചു

കാലാവസ്ഥാവൃതിയാനം വ്യാപാരം സുരക്ഷ തുടങ്ങിയ മേഖല്കളിൽ ഒന്നിച്ച് പ്രവർത്തിക്കാൻ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ പ്രതികരിച്ചു

നിരവധി വെല്ലുവിളികളാണ് മുന്നിലുള്ളതെന്ന് അഭിനന്ദന സന്ദേശത്തിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവേൽ മാക്രോൺ ചൂണ്ടിക്കാട്ടി കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്യൂഡോ ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അബ്ദേൽ ഫത്തേ അൽ സിസി തുടങ്ങിയവരും ഇരുവരേയും അഭിനന്ദിച്ചു

ഗുജറാത്തിലെ ഹാസിറയിൽ റോ പാക്സ് ടെർമിനലിന്റെ ഉദ്ഘാടനവും റോ പാക്സ് സർവ്വീസിന്റെ ഫ്ളാഗ് ഓഫും വീഡിയോ കോൺഫറൻസിംഗിലൂടെ പ്രധാനമന്ത്രി നിർവ്വഹിക്കും

സൂറത്തും സൌരാഷ്ട്രയും തമ്മിലുള്ള ജലമാർഗ്ഗം ദൃഢമാകുമെന്നും അദ്ദേഹം പറഞ്ഞു

ഈ പദ്ധതികളുടെ ഗുണഭോക്താക്കളുമായി പ്രധാനമന്ത്രി സംവദിക്കും

നക്സൽ ബാധിത പ്രദേശങ്ങളിലെ നാല് മണ്ഡലങ്ങളിലും പോളിംഗ് സമാധാനപരമായിരുന്നു

വാൽമീകി നഗർ ലോക്സഭാ സീറ്റിലേക്കുള്ള ഉപതിരഞ്ഞെടുപ്പും ഇതോടൊപ്പം നടന്നു

വോട്ടെണ്ണൽ മറ്റന്നാൾ

ദേശീയ പാതകളിൽ ഓൺലൈനായി ടോൾ പണം അടയ്ക്കാനുള്ള സംവിധാനമാണ് ഫാസ്ടാഗ്

ടോൾ പ്താസുകൾ വഴിയുള്ള വാഹനങ്ങളുടെ സുഗമമായ നീക്കം സാധ്യമാക്കാനും ടോൾ പിരിവ് പൂർണ്ണമായും ഇലക്ട്രോണിക് രീതിയിലാക്കാനുമുള്ള ഒരു സുപ്രധാന ചുവടുവയ്പായിരിക്കും ഈ തീരുമാനമെന്ന് മന്ത്രാലയം അറിയിച്ചു

പന്ത്രണ്ടര ലക്ഷത്തിലേറെപ്പേർ ഇതിനകം കോവിഡ് ബാധിച്ചു മരിച്ചു

യുഎന്നിന്റെ ഭരണപരമായ ഉപദേശക സമിതിയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ഇന്ത്യക്ക് അംഗരാജ്യങ്ങളുടെ മികച്ച പിന്തുണലഭിച്ചു രാജ്യത്തിന്റെ സ്ഥാനാർത്ഥിയിൽ വിശ്വാസം അർപ്പിച്ചത്തിൽ ഇന്ത്യയുടെ സ്ഥിരം യുഎൻ പ്രതിനിധി ടി എസ് തിരുമൂർത്തി അംഗരാജ്യങ്ങളോട് നന്ദി അറിയിച്ചു

എല്ലാ സൈനിക് സ്കൂളുകളിലും ആറാം ക്ലാസ് പ്രവേശനത്തിനായി ഇപ്പോൾ പെൺകുട്ടികൾക്കും അപേക്ഷിക്കാവുന്നതാണ്

അതീവജാഗ്രത പുലർത്തുന്ന ഇന്ത്യൻ സേന ശക്തമായ തിരിച്ചടി നൽകി ആൾനാശം റിപ്പോർട്ട് ചെയ്തിട്ടില്ല

കൊഹിമ ജില്ലയിലെ നാഗാ പൈതൃക ഗ്രാമമായ കിസ്മയിൽ എല്ലാവർഷവും ഡിസംബർ ഒന്ന് മുതൽ പത്ത് വരെയാണ് നാഗാലാൻഡുകാരുടെ സമ്പുഷ്ടമായ സംസ്കാരവും ചരിത്രവും പ്രദർശിപ്പിക്കുന്ന ഹോൺ ബിൽ ഫെസ്റ്റിവൽ നടക്കുന്നത്

അദ്ദേഹത്തിന്റെ മീശ എന്ന നോവലിന്റെ ഇംഗ് ളീഷ് പരിഭാഷയായ മൊസ്റ്റാഷ് ആണ് പുരസ്കാരത്തിന് അർഹമായത്